പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം

അതിതീവ്ര രോഗബാധിത പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിനുള്ള പ്രക്രിയയുടെ തുടർച്ചയാണിത്

സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളനുസരിച്ച് മെട്രോ റെയിൽ സിനിമാ ശാലകൾ ജിംനേഷ്യം നീന്തൽക്കുളങ്ങൾ പാർക്കുകൾ തിയേറ്ററുകൾ ബാറുകൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനം അനുവദിക്കില്ല

ആഭ്യന്തര വിമാനങ്ങളും ഞ്ട്യയിന്ുകളും പരിമിതമായ രീതിയിൽ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്

വൃക്തികളുടെയും ചരക്കുകളുടെയും അന്തർ സംസ്ഥാന നീക്കത്തിന് നിയന്ത്രണമില്ല

ഉചിതമായ സമയത്ത് അടച്ചിടൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമൂലം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അങ്ങിങ്ങായി ശ്രദ്ധയിൽപ്പെട്ട ജാഗ്രതക്കുറവ് പാടില്ലെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു അതിതീവ്ര രോഗബാധിത മേഖലകളിൽ ജാഗ്രത ഇനിയും കൂട്ടേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു

കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇത് ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

പദ്ധതി പ്രകാരം രാജ്യത്ത്ത് രു് ്കോടി ജനങ്ങൾക്ക് വരുന്ന അഞ്ച് മാസത്തേക്ക് കൂടി സൃദ്രജീസ്യമായി ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി പുറുഞ്ഞു

ഇന്ത്യൻ ഭാഗത്തെ മോൾഡോ ചുഷുൽ അതിർത്തി പോസ്റ്റിലാണ് ചർച്ച നടക്കുന്നത് ഗാൽവാൻ സംഭവത്തിന് ശേഷം രണ്ടാം തവണയാണ് കമാൻഡർ തല കൂടിക്കാഴ്ച നടക്കുന്നത് ഇന്ത്യൻ ഭാഗത്തു നിന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹരിന്ദർ സിംഗും ചൈനയുടെ ദക്ഷിണ സിൻജിയാങ് സൈനിക ഡിവിഷൻ മേജർ ജനറൽ ലിൻ ലൂയി യുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്

വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം സ്വീകരിച്ച് ചൈനീസ് ആപ്പുകൾക്ക് പകരമുള്ള ഇന്ത്യൻ ആപ്പുകളുടെ ഉപയോഗം വർദ്ധിച്ചു തുടങ്ങി

ഛത്തീസ്ഗഡ് ഒറീസ്സ കർണ്ണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വിവര സാങ്കേതിക വിദഗ്ദ്ധരാണ് ആപ്പുകൾ നിർമ്മിച്ചത്

ക്ലൂട്ടലാസ് രഹിതവും സ്വയം സാക്ഷ്യപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കിയുമായിരിക്കും പൂർണ്ണമായും ഓൺലൈൻ വഴിയുള്ള പുതിയ നടപടിക്രമങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് രേഖകളോ തെളിവുകളോ അപ്ലോഡ് ചെയ്യേണ്ടതില്ല

വ്യാപാരം എളുപ്പമാക്കുന്നതിനും സംസ്ഥാനങ്ങളിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഏകീകരിക്കുന്നതിനും ഭേദഗതി വഴിയൊരുക്കും സംസ്ഥാന സർക്കാരുകളുമായി സ്റ്റാമ്പ് ഡ്യൂട്ടി പങ്കിടുന്നതിനുള്ള പുതിയ സംവിധാനം തയ്യാറായിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെ മാളുകൾ തുറക്കാൻ ഹരിയാന സർക്കാർ അനുമതി നൽകി രാത്രി ഒൻപത് മുതൽ രാവിലെ അഞ്ച് വരെ കർഫ്യൂ തുടരും

ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് ആണ് ദേശീയ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ

ആർ എന്നിവയുമായി ചേർന്ന് പ്രതിരോധ മരുന്ന് വികസിപ്പിച്ചത്

ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ കോവിഡിനെതിരായി പൊരുതുന്ന സമയത്താണ് ഇക്കുറി ഡോക്ടേഴ് സ് ദിനാചരണം വെല്ലുവിളികൾ അതിജീവിച്ച് നിസ്വാർത്ഥ സേവനത്തിലൂടെ നാടിന്റെ പുരോഗതിയ്ക്കായി നിരന്തരം പോരാടുന്ന എല്ലാ ഡോക്ടർമാരെയും ആരോഗ്യ വകുപ്പും സർക്കാരും ആദരിക്കുന്നുവെന്ന് മന്ത്രി കെ